ഐകൃരാഷ്ട്ര പൊതുസഭയെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിസംബോധന ചെയ്തു ഐകൃരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട പരിഷ്കരുണ നടപടികൾക്കായി ഇന്ത്യൻ ജനത കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി

സംസ്ഥാനത്തെ പ്രതിദിനു ്ക്യോവിഡ് ബാധിതരുടെ എണ്ണം ഏഴായിരം പിന്നിട്ടു

തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ആയിരത്തിലധികം കോവിഡ് ബാധിതർ

ഊരാളുങ്കൽ സൊസൈറ്റിയ്ക്കാണ് പൊളിക്കുന്നതിനുള്ള കരാർ

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ഐക്യാരാഷ്ട്രസഭയുടെയും ഇന്ത്യയുടെയും അടിസ്ഥാന തത്വങ്ങൾ സമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾ ക്കായി ഇന്ത്യൻ ജനത വളരെ നാളുകളായി കാത്തിരിക്കുക യാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ലോകം മുഴുവൻ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാ ണെന്നും ലോക ജനതയെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ വാക്ക്സിൻ ഉല്പാദന ശേഷി പ്രയോജനപ്പെടുത്തുമെന്നും പ്രധാന്ദ്രമൃന്തി പറഞ്ഞു

നാട്ട് ആഗ്ഗ്ഹിക്കുന്ന ഭാവി നമുക്ക് ആവശ്യമായ ഐക്യരാഷ്ട്ര സ്ഘടന കോവിഡ് പ്രതിരോധ ത്തിനായുള്ള ബഹുമൂഖ് നട്പടികൾ തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു സമ്മേളനം

ഊരാളുങ്കൽ സൊസൈറ്റിയ്ക്കാണ് ഇതു സംബന്ധിച്ചു കരാർ നൽകിയിരിക്കുന്നത്

ആർ

യുടെയും ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും ഇന്ന് ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് എട്ടു മാസം കൊണ്ട് മേൽപ്പാല നിർമാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്

എം ആർ

മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ പണിയുടെ മേൽനോട്ടം വഹിക്കും

ബാലസുബ്രഹ്മണ്യം വിട ഇന്നലെ അന്തരിച്ച വിഖ്യാത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടന്നു തിരുവള്ളൂർ ജില്ലയിലെ താമരൈപാക്കത്തുള്ള ഫാം ഹൌസിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു

ശൈലജ ഭിന്നശേഷിക്കാർക്ക് നൂതന സാങ്കേതിക ഉപകരണങ്ങൾ സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപറേഷനിലൂടെ വിതരണം ചെയ്യുന്നതിന് ഒരു കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ തായി ആരോഗ്യ മന്ത്രി കെ

അർഹതയുള്ള വരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപകരണം ഒരാൾക്ക് ഒന്നിലധികം തവണ നൽകരുതെന്ന നിബന്ധനയോടെയാണ് അനുമതി നൽകിയിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു

കേരള സർക്കാർ ചെല വാക്കിയ തുകയ്ക്ക് ടോൾ ആവശ്യമില്ലെന്നും കേന്ദ്രസർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്നും മന്ത്രി ആവശ്യ പ്പെട്ടു

തനിക്കും ന്യൂനപക്ഷങ്ങൾക്കും ലഭിച്ച വലിയ അംഗീകാരമാണിതെന്ന് എ

അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര സർക്കാർ കൊണ്ടു വന്ന കാർഷിക ബിൽ കർഷകർക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പല കേന്ദ്ര തീരുമാനങ്ങളും കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്നു വെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിലവിലുള്ള എട്ട് ലക്ഷത്തോളം ഒഴിവുകളിൽ നിയമനം നടത്താത്തതിനെതിരെ യുവാക്കളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ശ്രീ

ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം രാഷ്ട്രീയ ലക്ഷൃങ്ങ ളോടെയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു

സി

കേന്ദ്രസർക്കാരിന്റെകാർഷിക ബില്ലിനെതിരായ ക്ടോൺഗ്ഗസ്സ് പ്രതിഷേധ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന്ം തിരുവനന്തപുരത്ത് നിർവഹിക്കുക ആയിരുന്നു അദ്ദേഹം

തുടർന്ന് പ്രാദേശിക ഭാഷകളിലുള്ള പരിഭാഷയും കേൾക്കാം

മ്ത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺഐസസ് ഹൈദ്രാബാദും തമ്മിൽ ഏറ്റുമുട്ടും

കോവിഡ് കാലത്ത് കാർഷിക രംഗത്ത് വൻ നേട്ടമുണ്ടാക്കാ നായി എന്നത് അഭിമാനകരമാണെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

നിരവധി വാഹനമോഷണ കേസുകളിലും ലഹരി കടത്തു കേസുകളിലും പ്രതിയായ ഇയാൾ മുക്കത്തെ വയോധികയെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം സ്വർണ്ണം കവർന്ന കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയവെയാണ് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ചാടി പോയത് ലോഫ്ളോർ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്കും തിരിച്ചും ലോഫ്ളോർ നോൺ എ സി ബസ് സർവ്വീസ് ആരംഭിക്കു മെന്ന് കെ എസ് ആർ

ജല ഗുണനിലവാര ്ലാബ് കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുത്ത ഹയർസെക്കൻഡറി സ്കൂളുകളിലെ കെമിസ്ട്രി ലാബിനോട് ചേർന്ന് ജലഗുണ നിലവാര പരിശോധന ലാബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു

കുമാരൻ ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് തുടക്കമായി അടുത്തമാസം ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ആകാശഗോപുരം തോറ്റം രുഗ്മിണി തുടങ്ങി ആറ് ചിത്രങ്ങൾ ഓൺലൈനായി പ്രദർശിപ്പിക്കും